സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു വയനാട് ചുരത്തിൽ ഇന്ന് രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും ആറ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ബാലനീതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യാത്ത അനാഥാലയ ങ്ങൾക്കെതിരെ നടപടി പാടില്ലെന്ന് സുപ്രീംകോടതി ക്രൊയേഷ്യ ലോകകപ്പ് ഫൂട്ബോളിന്റെ ഫൈനലിൽ പ്രവേശി ച്ചു ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ഏകദിനം ഇന്ന് ള്ള ൽ ദേശീയ ഗ്രാമീണ ഉപജീവന ദൌതൃത്തിന്റെ ഗുണഭോക്താക്കളു മായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും

ദൂരദർശൻ ഇത് തൽസമയം സംപ്രേ ക്ഷണം ചെയ്യും പദ്ധതിക്ക് കീഴിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും സ്വയം സഹായ ഗ്രൂപ്പ് അംഗങ്ങളുടെ ജീവിതങ്ങളിൽ ദേശീയു ഗ്രാമീണ ഉപജീവന ദൌതൃം വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചും നേരിട്ടറിയാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ ആശയവിനിമയും സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും കുന്നത്ത മഴ തുടരുന്നു ബുധ നാഴ്ച്ച വരെ കനത്ത മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്

താഴ്ന്ന മേഖലകളിൽ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദേ ശിച്ചു

കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിഞ്ഞ റോഡിലെ അപകടാവസ്ഥ കണക്കിലെടുത്ത് വയനാട് ചുരത്തിൽ ഇന്നു രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ യു

ജോസ് അറിയിച്ചു പ്രതിദിന റൂട്ട് പെർമിറ്റുള്ള കെഎസ്ആർടിസി ഉൾപ്പടെ ബസുകൾക്ക് സർവീസ് നടത്താം സ്കാനിയ ടൂറിസ്റ്റ് ബസുകൾ ഉൾപ്പെടെ വലിയ യാത്രാ വാഹന ങ്ങൾ ചൂരം വഴി സർവീസ് നടത്തുന്നത് ഇനി ഒരറിയിപ്പുണ്ടാകുന്ന തുവരെ നിരോധിച്ചതായി കളക്ടർ അറിയിച്ചു ചരക്കു വാഹനങ്ങ ളുടെ ഗതാഗത നിരോധനം തുടരും

എറണാകുളം ജില്ലയിൽ കോളേജുകളും പ്രൊഫഷണൽ കോളേ ജുകളും ഒഴികെ എല്ലാ വിദ്യാലയങ്ങൾക്കും അവധി യായിരിക്കും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജു കൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി വയനാട് ഇടുക്കി ജില്ലകളിൽ പ്രൊഫഷണൽ കോളജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാ പിച്ചു പാലക്കാട് ജില്ലയിൽ അംഗൻവാടി മുതൽ ഹിയർ സെക്കൻ്ററി വരെ വിദ്യാലയങ്ങൾക്കാണ് അവധി കോളേജുകൾ പ്രവർത്തിക്കും ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലെ സ്കൂളുകൾക്കാണ് അവധി നൽകിയിരിക്കുന്നത് പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല അതിശക്തമായ മഴ തുടരുന്ന സാഹച്ചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ യു

തുടർച്ചയായ മഴ വെള്ളപ്പൊക്കം ഉരുൾപ്പൊട്ടൽ മണ്ണിടി ച്ചിൽ എന്നിവയ്ക്ക് കാരണമാകാമെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ല യിലെ മലയോര മേഖലയിൽ ഉരുൾപ്പൊട്ടൽ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം കക്കയം ഡാം തുറന്നതിനാൽ ജനങ്ങൾ ഡാമിന് സമീപം പോകരുതെന്നും കലക്ടർ നിർദ്ദേശിച്ചു

ബാണാസുരസാഗറിലും കാരാപ്പുഴ ഡാമിലും ജലനി രപ്പ് ഉയർന്നു കണ്ണൂരിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് പലയിടങ്ങ ളിലും വീടുകൾക്ക് കേട് പറ്റി മാഹി നടുവിൽ ചിറ്റാരിപ്പറമ്പ് പെരി ങ്ങത്തൂർ കരിവഞ്ചാൽ എന്നിവിടങ്ങളിലാണ് വീടുകൾ ഭാഗികമായി തകർന്നത് മലയോര ഹൈവേയിലും കൊട്ടിയൂർ പാൽച്ചുരത്തും റേഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണു അട്ടപ്പാടി ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി തടസ്സപ്പെട്ട ഗതാ ഗതം പുനസ്ഥാപിച്ചു ചുരം റോഡിൽ പലയിടത്തും മണ്ണിടിച്ചിൽ സാധൃത നിലനിൽക്കുന്നതിനാൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണ

ഇടുക്കി മൂലമറ്റം വാഗമൺ റൂട്ടിൽ ഇലപ്പള്ളി എടാട്ടിന് സമീപം ഉരുൾപൊട്ടലുണ്ടായി മണ്ണും കല്ലും റോഡിലേയ്ക്ക് പതിച്ച് ഗതാഗത തടസം നേരിട്ടു

വണ്ടിപെരിയാർ നെല്ലിമലയിൽ ദേശീയ പാതയിൽ വെള്ളം കയറി വലിയ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി ക്ടന്നു പോകുന്നത് ഇടുക്കി നെടുങ്കണ്ടത്തെ കല്ലാർ ഡൈവേർഷൻ ഷട്ടർ തുറന്ന് വിടാൻ സാദ്ധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു സമസ്തയുടെ കീഴിലെ എല്ലാ മദ്റസകൾക്കും ഇന്ന് അവധിയാ യിരിക്കുമെന്ന് സമസ്ത കേരള ഇസ്താം മത വിദ്യാഭ്യാസ ബോർഡ് കോഴിക്കോട്ട് അറിയിച്ചു ബാലനീതി നിയമപ്രകാരം ്രജിസ്റ്റർ ചെയ്യാത്ത അനാഥാലയ ങ്ങൾക്കെതിരെ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെ നടപടി പാടി ല്ലെന്ന് സൂപ്രീം കോടതി ഉത്തരവിട്ടു ബാലനീതി നിയമത്തിലെ മറ്റു വകുപ്പൂകൾ ഈ സ്ഥാപനങ്ങൾക്കു മേൽ അടിച്ചേൽപ്പിക്കരുതെന്ന് ജസ്റ്റിസുമാരായ മദൻ

ലോക്കൂർ ദീപക് ഗുപ്ത എന്നിവരുടെ ബെഞ്ച് കേരളത്തോടാവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലം അപര്യാപ്തമാണെന്നും പുതിയ സത്യവാങ്മൂലം നൽകണമെന്നും ബെഞ്ച് നിർദ്ദേശിച്ചു

സെമിയിൽ ഇംഗ്ലണ്ടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളു കൾക്ക് കീഴടക്കിയാണ് ചരിത്രത്തിലാദ്യമായി ക്രൊയേഷ്യ ലോകക പ്പിന്റെ കലാശപ്പൊരാട്ടത്തിന് ഇടം നേടിയത് നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിലായിരുന്നു അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ മരിയോ മൻസൂകിച്ചാണ് ക്രൊയേ ഷ്യയുടെ വിജയ ഗോൾ നേടിയത്

ഇന്ത്യൻ സമയം വൈകീട്ട് അഞ്ച് മുതൽ നോട്ടിങ്ങ്ഹാമിലാണ് മത്സരം

കൺസ്യൂമർ ഫെഡ് ജീവനക്കാർക്ക് ഈ മാസം ഒന്നു മുതൽ പ്രാബലൃത്തോടെ ശമ്പള പരിഷ്ക്കരണം നടപ്പാക്കും

മെഹബൂബ് കൊച്ചിയിൽ പറഞ്ഞു കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുന്നതിനും ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് പുന സ്ഥാപിക്കുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരമായി ഇട പെടണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട്ട് എം

കുഞ്ഞാലിക്കുട്ടി എംപി ഉദ്ഘാടനം ചെയ്യും ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളത്തിന് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് യുഡി എഫ് നേതാക്കൾ കോഴിക്കോട്ട് അറിയിച്ചു കാഞ്ഞങ്ങാട് പുല്ലൂർ സർവ്വീസ് സഹകരണ ബാങ്കിലെ അഡ്മി നിസ്ട്രേറ്റീവ് ഭരണം ഹൈക്കോടതി റദ്ദാക്കി ബാങ്ക് വൈസ് പ്രസി ഡന്റ് കെ

ഗംഗാധരൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് യൂഡിഎഫ് ഭരണസമിതിയ്ക്കകത്തുണ്ടായ ഭിന്നിപ്പ് മുത ലെടുത്തുകൊണ്ടാണ് നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയെ പിരിച്ചുവിട്ട് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ മൂന്നംഗ അഡ്മിനിസ്ട്രേറ്റർമാരെ ഭരണച്ചുമതല ഏൽപ്പിച്ചത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിൽ അംഗപരിമിതരുടെയും വയോ ധികരുടെയും മറ്റ് യാത്രക്കാരുടെയും സുരക്ഷിതയാത്രക്ക് തടസ്സം നിൽക്കുന്ന വഴിയോരക്കച്ചവടക്കാരെ ഒഴിപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു ട്രാഫിക് റഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം എസ്

കുടിവെള്ള സ്രോതസ്സ് മലിനമാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ യഥാസമയം നടപടി സ്വീകരി ക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദേശം നൽകി പാലക്കാട് നടന്ന അദാലത്തിൽ പരാതികൾ പരിശോധിക്കുകയായി രുന്നു കമ്മീഷൻ ബോട്ടിന്റെ എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് കട്ടലിൽ കുടുങ്ങി യ അഞ്ച് മത്സൃ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കണ്ണൂർ ആയിക്കര യിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട തൊഴിലാളികളാണ് കട ലിൽ കൂടുങ്ങിയത് ശക്തമായ തിരമാലകളിൽ നിയന്ത്രണം വിട്ട ബോട്ടിലെ തൊഴിലാളികളെ ഇന്നലെ രാത്രി ഒമ്പത് മണിയോടെ എട ക്കാടിനടുത്ത് കിഴുന്നയിൽ നിന്ന് പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് അവശനിലയിലായ ഇവരെ ജില്ലാ അശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭയിൽ വിശപ്പുരഹിതം പദ്ധ തിക്ക് തുടക്കമായി നഗരത്തിൽ എത്തുന്ന ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഭക്ഷണം നൽകുന്നതാണ് പദ്ധതി ആയിരക്കണക്കിന് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ദുരി തങ്ങളുടെ നേരറിവുകളാണ് തന്നെ ഇപ്പോൾ നയിക്കുന്നതെന്ന് പ്രശസ്ത സാമൂഹിക പ്രവർത്തക ദയാബായ് പറഞ്ഞു